സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനം

ശ്രീരാമകൃഷ്ണൻ ന്നീരീക്ഷണത്തിൽ കോവിഡ് വ്യാപന്ക്ക്ണക്കിലെടുത്ത് ന് കോഴിക്കോട് ജില്ലയിൽ സർവ്വകക്ഷി യോഗം ചേർന്നു ജില്ലിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ്തീരുമാനം മന്ത്രി കെ

മുഖ്യമന്ത്രി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ

തുറന്നു നാളെ മുതൽ ഭക്തർക്ക് നിയന്ത്രണങ്ങളോടെ പ്രവേശനം അനുവദിക്കും

ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ശ്രീരാമകൃഷ്ണഏ് കോവിഡ് സ്ഥിരീകരിച്ചു

അടൂത്ത് പ്രദിവസങ്ങളിൽ സ്പീക്കറുമായി സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ട്ട് കോഴിക്കോട് ഇൻട്രോ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം ശക്തിപ്പെടുന്ന സാഹചരൃത്തിൽ അടുത്ത രണ്ടാഴ്ചയിൽ എല്ലാ പൊതുപരിപാടികളും ഒഴിവാക്കാൻ കലക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചു

വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതിവിവരങ്ങൾ അവലോകനം ചെയ്യാനായി പ്രധാനമന്ത്രി മുഖ്യമത്ത്രിമാരുമായി നടത്തിയ യോഗത്തിലായിരുന്നു ടീക്കാ ഉത്സപ്പ് സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയ്ക്ക്

പദ്ധതിയ്ക്കാവശൃമായ വാക്സിൻ ഡോസുകൾ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ

കോവിഡ് സന്ദേശം ഇൻട്രോ സംസ്ഥാനത്ത് കോവിഡ് വ്യാപിക്കുന്നത് തടഞ്ഞുനിർത്താൻ വാക്സിനേഷൻ പ്രധാനമാണെന്നും സർക്കാർ നിർദ്ദേശിച്ച പ്രായപരിധിയിൽ പെടുന്നവർ നിർബന്ധമായും വാക്സിൻ സ്വീകരിക്കണമെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോവിഡ് ഡോ

ആകാശവാണി വാർത്തകളോട്

കൊല്ലം കളക്ടർ കൊല്ലം ജില്ലയിലെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കൂടുതൽ ജാഗ്രതയോടെ കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളികളാകാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി കക്ഷികളോട് കളക്ടർ ബി അബ്ദുൽ നാസർ സഹകരണം അഭ്യർത്ഥിച്ചു

തുടർന്നും കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ആശങ്കകൾക്കും മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയാറാണെന്നും ശ്രീ തോമർ അറിയിച്ചു

പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുമെന്നും ബി ജെ

അധികാരത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സിലിഗുഡിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധ ചെയ്യുകയായിരുന്നു അദ്ദേഹം ബംഗാളിൽ പുതുവർഷം പിറക്കാൻ പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പിനിടെ കുച്ച് ബിഹാറിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളെ പ്രധാനമന്ത്രി അപലപിച്ചു ബംഗാളിലെ കൃഷ്ണനഗറിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു മുഖ്യമന്ത്രി മമതാ ബാനർജിയും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു

മുരളീധരൻ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതിന് പുറത്താക്കണമെന്ന് ലോകായുക്ത ഉത്തരവിറക്കിയിട്ടും മന്ത്രി കെ

ജലീലിന്റെ രാജി ആവശ്യപ്പെടാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപതൃത്തെ പരിഹസിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി

സംസ്ഥാനചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിയെ മാറ്റണമെന്ന് ലോകായുക്ത ഉത്തരവിടുന്നതെന്നും ധാർമികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി കെ

കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ സ്പീക്കർ ഹാജരാകത്തതിനെ തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്പീക്കറെ തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്തതെന്നാണ് സൂചന അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ കസ്റ്റംസ് ഇന്ന് പരിശോധന നടത്തിയതായും റിപ്പോർട്ടുണ്ട്

ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറയുടെ റിപ്പോർട്ടിലേക്ക്

ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും തെളിവ് നശിപ്പിക്കാനും കേസന്വേഷണം അട്ട്രിമറിക്കാനും ശക്തമായ ഭരണകക്ഷിയായുക്കുറ്സി

മൻസൂർ പാനൂർ കണ്ണൂർ പാനൂരിലെ പ്രെലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകവുമായി ബ്ന്ധപ്പെട്ട് രണ്ടു പേർ കൂടി പൊലീസ് കസ്റ്റഡിയിലായി

അതിനിടെ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി റിപ്പോർട്ടുണ്ട്

എഫിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പാനൂർ മേഖലയിൽ സമാധാന സന്ദേശയാത്ര നടത്തും കടവത്തൂരിൽ നിന്ന് തുടങ്ങി മുക്കിൽപീടിക വഴി പെരിങ്ങത്തൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് യാത്ര നടത്തുക

മണ്ഡല മകരവിളക്ക് തീർഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിന് എത്തുന്നത് വിഷു ഉത്സവത്തോടനുബന്ധിച്ചാണ് വിഷുദിനത്തിൽ പൂലർച്ചെ അഞ്ച് മുതൽ ഏഴുവരെ വിഷുക്കണി ദർശനമുണ്ടാകും

ഐ

എല്ലിൽ ഇന്ന് ചെസ്റ്റൈസൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും